ജാഗ്രതയും അനിവാര്യമാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറ് കോടിയിലേറെ കോവിഡ് വാക്സിൻ ഡോസ് നൽകി ഇന്ത്യ പുതിയ നാഴികകല്ല് പിന്നിട്ടു

പശ്ചിമബംഗാളിൽ ബി ജെ

അസമിൽ അധികാരം നിലനിർത്തുമെന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ

പ്രചാരണത്തിൽ മൂന്ന് മുന്നണികളുടെയും മുന്നേറ്റം

ആന്ധ്രാപ്രദേശിലുണ്ടായ വാഹനാപകടത്തിൽ ഏഴ് തീർത്ഥാടകർ മരിച്ചു

ഇന്ത്യയ്ക്കെതിരായ മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തുടരുന്നു

കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ മരുസ്സ് ് ജാഗ്രതയും അനിവാര്യമെന്നും പ്രധാനമന്ത്രി പ്രതിമാസ് റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻകി ബാത്തിൽ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ

കാർഷിക മേഖലയിൽ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്ന തിനും പരമ്പരാഗത കൃഷിയോടൊപ്പം പുതിയ രീതികളും സ്വായത്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് തേനീച്ച വളർത്തലിലൂടെ മധുര വിപ്തവത്തിന് തുടക്കം കുറിക്കാമെന്നും അദ്ദേഹം വൃക്തമാക്കി പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന്റെ പ്രാധാനൃവും വിവിധ സംസ്ഥാനങ്ങളിലെ ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം വിശദമാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മൂലൃവർദ്ധിത ഉത്പന്നങ്ങൾ ഉണ്ടാക്കുന്ന യജ്ഞത്തിന് ഏറെ പ്രാ്ധാന്യമുണ്ടെന്നും പ്രധാനമന്ത്രി മൻ കി ബാതിൽ പറഞ്ഞു പഴയ തുണി തടി ബാഗ് ബോക്സ് എന്നിവ ഉപയോഗിച്ച് ശിശു സൌഹൃദ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി അംഗന വാടിയിലെ കുട്ടികൾക്ക് സമ്മാനിക്കുന്ന കേരളത്തിലെ സെന്റ് തെരേസാസ് കോളേജിന്റെ പ്രവർത്തനം അഭിനന്ദനീയമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

അതേസമയം മഹാരാഷ്ട്ര ഛത്തീസ്ഗഢ് കർണാടക പഞ്ചാബ് ഗുജറാത്ത് മധ്യപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട്

രോഗവ്യാപനം തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ സംസ്ഥാനങ്ങളോട് കേന്ദ്രസർക്കാർ നിർദ്ദേശം നൽകി

എം

രണ്ട് കോടി ഇരുപത് ലക്ഷത്തോളം പേർ നിലവിൽ ചികിത്സയിലുണ്ട്

അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു

ഇടത് വലത് എൻ ഡി എ മുന്നണികളിലെ ദേശീയ നേതാക്കളുടെ സാന്നിദ്ധ്യവും ശ്രദ്ധേയ മാണ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച പാലക്കാട്ട് ബി ജെ

എൻഫോഴ്സ് മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം തീരുമാനി ച്ചതിലൂടെ സംസ്ഥാന ഗവൺമെന്റ് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്ന് കേരളത്തിൽ എൻ ഡി എയ്ക്കായി പ്രചാരണം നടത്തുന്ന കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പറഞ്ഞു അധികാരത്തിലെത്തുകയാണെങ്കിൽ ശബരിമല ആചാര സംരക്ഷണത്തിന് നിയമനിർമ്മാണം നടത്തു മെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കോഴിക്കോട് എൻ ഡി

ഡി

ഇടതുമുന്നണിയ്ക്കായി സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ബൃന്ദാകാരാട്ടും ഇന്ന് വിവിധയിടങ്ങളിൽ പ്രചാരണം നടത്തി

ശ്രീരാമകൃഷ്ണൻ ദുരുദ്ദേശ്യത്തോടെ തന്നെ ഫ്ളാറ്റിലേക്കു വിളിച്ചെന്നു സ്വർണക്കടത്ത് കേസ് പ്രതി സ്പപ്ന സുരേഷിന്റെ മൊഴി

അതേസമയം മൊഴി എന്ന രൂപത്തിൽ എന്തും എഴുതിപ്പിടിപ്പി ക്കാമെന്ന തരത്തിൽ അന്വേഷണ ഏജൻസികൾ തരം താഴുന്നത് ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്തിന് ഭൂഷണമ ല്ലെന്ന് നിയമസഭാ സ്പീക്കർ പി

സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരേ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു

ഖേദ പ്രകടനം നടത്താനിടയായ സാഹചര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും പരിശോധിക്കുമെന്നും തിരുവനന്തപുരത്ത് മീറ്റ് ദി പ്രസ് പരിപാടിയിൽ അദ്ദേഹം വ്യക്തമാക്കി ശബരിമല വിഷയം സുപ്രീംകോടതി വിശാല ബഞ്ചിന്റെ പരിഗണനയിലിരിക്കുന്നതാണെന്നും അന്തിമ വിധിക്ക് ശേഷം വിശദമായ ചർച്ച നടത്തുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ശ്രീ യെച്ചൂരി കൂട്ടിച്ചേർത്തു

കർശനമായ ധനകാര്യ നിയമങ്ങളുടെ പേരിൽ ആളുകൾ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സ്ഥിതി നിലവിലുണ്ട് ബദൽ സംവിധാന ങ്ങളില്ലാതെ അത്തരത്തിലുള്ള പുറത്താക്കലിനെതിരെ സംര ക്ഷണം നൽകുന്നതിനാണ് ഈ നിയമം കൊണ്ടുവരുന്നതെന്നും മുഖ്യമന്ത്രി കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി

ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു അീപ്പക്ടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ചു

കരുനാഗപ്പള്ളി പന്മന സ്വദേശികളായ ശ്രീജിത്ത് ഹനീഷ് സജ്ജാദ് എന്നിവരാണ് മരിച്ചത് ഹരിപ്പാടിന് അടുത്തുള്ള വീയപുരത്ത് ഇന്ന് വൈകുന്നേരമായിരുന്നു അപകടം ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ തിരച്ചലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്

ജയ്സൺ റോയ് ജോണി ബെയർ സ്റ്റോ ബെൻസ്റ്റോക്സ് ജോസ് ബട്ട്ലർ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇംഗ്ലണ്ടിന് നഷ്ടമായത്

ശിഖർ ധവാൻ ഋഷഭ് പന്ത് ഹർദ്ദിക് പാണ്ഡ്യ എന്നിവരുടെ അർദ്ധ സെഞ്ചറികളാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് ഇന്ന് വിജയിക്കുന്ന ടീം പരമ്പര സ്വന്തമാക്കും

എഫ് ഷൂട്ടിങ് ലോക്ട്കുപ്പിലെ വനിതകളുടെ ട്രാപ്പ് ഇനത്തിൽ ഇന്ത്യയുടെ ശ്രേയ്ക്സി് സിങ് മനിഷ കീർ രാജേശ്വരി കുമാരി സഖ്യവും പൂരുഷന്മാരുടെ ട്രാപ്പ് ഇനത്തിൽ ക്യാനൻ ചേനായി പൃഥിരാജ് ട്ടൊൻഡെയ്മൻ ലക്ഷ്യ സഖ്യവും സ്വർണം നേടി വനിതാ ടീം ഫൈനലിൽ കസാഖിസ്ഥാനെയും പുരുഷന്മാർ സ്നോവാക്യയെയുമാണ്ട് തോൽപിച്ചത്